രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും

ബാങ്ക് മേധാവികൾ ഇന്ന് ധനകാര്യ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി മുൻപാകെ സ്ഥിതിഗതികൾ വിവരിക്കും

ആരിലും രോഗം കണ്ടെത്തിയില്ല ഇന്ന് സർവ്വകക്ഷി യോഗം ചേരും

രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷത വഹിക്കും രാഷ്ട്രപതിയുടെ ഉദ്ഘാടനം പ്രസംഗത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഫ്ളാഗ് ഷിപ്പ് പദ്ധതികളെക്കുറിച്ചുളള പ്രദർശനങ്ങളും നടക്കും സമ്മേളനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും നിതി ആയോഗ് വൈസ് ചെയർമാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരും വിഷയാവതരണം നടത്തും പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും സമ്മേളനത്തിന്റെ അവസാന ഭാഗത്തെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തര മന്ത്രി വിദേശകാര്യമന്ത്രി എന്നിവർ അഭിസംബോധനം ചെയ്യും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായുളള പ്രത്യേക സെഷൻ നാളെ നടക്കും

ബാങ്കുകളുടെ കിട്ടാക്കടം പെരുകുന്ന സാഹചര്യവും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും ബാങ്ക് ഉദ്യോഗസ്ഥർ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിക്കും

ജോഹന്നാസ് ബർഗ്ഗിൽ അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് വാർഷിക സമ്മേളനത്തിനുളള സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കും ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ബ്രിക്സ് ഇന്ത്യ ബ്രസീൽ സൌത്ത് ആഫ്രിക്ക കൂട്ടായ്മ ഇബ്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ അവർ അധ്യക്ഷത വഹിക്കും പ്രധാന ആഗോള പ്രശ്നങ്ങളിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും സഹകരണം വർദ്ധിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഇബ്സ ശ്രീമതി സുഷമ സ്വരാജ് ഇന്നലെ സൌത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയെ സന്ദർശിച്ച് ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാനുളള വഴികൾ ചർച്ചചെയ്തിരുന്നു

മഹാരാഷ്ട്രയിൽ യവത്മാൻ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

നഗര വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഹർദീപ് സിംഗ്

ഒഡീഷ മഹാരാഷ്ട്ര അടക്കമുള്ള തീരദേശ സംസ്ഥാനങ്ങളിലെ ബീച്ചുകൾക്കാണ് ഈ സുപ്രധാന അംഗീകാരം ലഭിക്കുന്നത് ബ്ലൂ ഫ്ളാഗ് സാക്ഷ്യപത്രം ലഭിക്കുന്ന ഏഷ്യയിലെത്തന്നെ ആദ്യ ബീച്ചുകളായിരിക്കും ഇവ

ബ്രസീലിലെ വിവിധ പ്രവർത്തന പരിശീലന യൂണിറ്റുകൾ അദ്ദേഹം സന്ദർശിക്കുകയും ബ്രസീലിയൻ നാവിക സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും

ഐ ആർ രജിസ്റ്റർ ചെയ്തു അതോറിറ്റിയുടെ സി ഇ ഒ പി സി ഗുപ്ത ഡെപ്യൂട്ടി സി ഇ ഒ സതീഷ് കുമാർ എന്നിവരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീ സജി ചെറിയാൻ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും

ആദ്യത്തെ രണ്ട് ദിവസം ആറ് ബില്ലുകൾ നിയമസഭയുടെട്ട് പ്രിഗണനയ്ക്ക് വരും

വൈറസ് ബാധ സംബന്ധിച്ച് ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം വിലയിരുത്തി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് തിരുവനന്തപുരത്ത് സർവ്വകക്ഷിയോഗം ചേരും കൂടുതൽ വിവരങ്ങളുമായി കവിത

ഹരിതകേരളം മിഷനും ശുചിത്വ മിഷനും ഇതിനു വേണ്ടി പരിശീലന ബോധവൽക്കരണ പരിപാടികൾ നടത്തി ഹരിതപെരുമാറ്റച്ചട്ടം ആരംഭിക്കുന്നതിനു മുന്നോടിയായി നാളെ എല്ലാ സ്ഥാപനങ്ങളിലും ഹരിത പ്രതിജ്ഞ എടുക്കും

പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും പരിസ്ഥിതി ജലസംരക്ഷണം വിഷയമാക്കി ഹരിതകേരളം മിഷൻ നിർമ്മിക്കുന്ന അനിമേഷൻ വീഡിയോ പരമ്പര പ്രകാശനം ചെയ്യും

ചരിത്രസംഭവങ്ങൾ പലതും നാടിനെ തെറ്റിദ്ധരിപ്പിക്കും വിധം അവതരിപ്പിക്കുന്ന ഇക്കാലത്ത് വസ്തുതകൾ വരും കാലത്തേക്കായി കൃത്യമായി രേഖപ്പെടുത്തിവെക്കുന്ന മ്യൂസിയങ്ങളുടെ പ്രസക്തി വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തുള്ള നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ പൂർത്തിയാക്കി മൂന്നുമാസം കൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും നേപ്പിയർ മ്യൂസിയത്തിന്റെ നവീകരണം ഉടൻ ആരംഭിക്കും കോഴിക്കോട്ടെ വി

കൃഷ്ണമേനോൻ സ്മാരക മ്യൂസിയത്തിന്റെ വികസനപ്രവർത്തന ങ്ങൾ പുരോഗമിക്കുകയാണ് വയനാട് പൈതൃക മ്യൂസിയത്തിന്റെ നവീകരണവും പൂർത്തിയായി വരികയാണെന്നും മുഖ്യമന്ത്രി അറി യിച്ചു

ഇന്നലെ രാത്രി കൊച്ചിയിലായിരുന്നു അന്ത്യം ഏറെനാളായി രോഗ ബാധിതയായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ എറണാകുളം ടൌൺ ഹാളിൽ പൊതു ദർശനത്തിന് വച്ചശേഷം ഉച്ചയ്ക്ക് ഒരുമണിയ്ക്ക് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും

മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഇടമലക്കുടിയിൽ വിറക് ഉപയോഗിച്ചാണ് പാചകം നടത്തിയിരുന്നത്

ഒഡീഷയിലെ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്നതിനായി പലിബനി മിഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഒറ്റപ്പെട്ട മേഖലകളിൽ വിവിധ പ്രാദേശിക ഭാഷകളിൽ ശക്തമായ പത്രപ്രവർത്തനം നടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇൻർനെറ്റിന്റെ വ്യാപ്തി ഏറെ വർദ്ധിക്കുന്നതിനാൽ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാവി ഡിജിറ്റൽ മാധ്യമങ്ങളാണെന്നും ശ്രീ വെമ്പതി പറഞ്ഞു

ഡെറാഡൂണിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് ഇരുപത്തയ്യായിരത്തോളം കാണികൾ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തി

സി കോഴിക്കോടിനെയാണ് കീഴടക്കിയത്